സംരക്ഷണം നൽകുന്നത്തിനുള്ള ചട്ടങ്ങൾ കേന്ദ്രസർക്കാർ പുറത്തിറക്കി

കേരളത്തിൽ തുടർച്ച്യായ രണ്ടാം ദിവസവും ന് എണ്ണായിരത്തിലധീകം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു

ശതമാനമായതായി കേന്ദ്ര സർക്കാർ

മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു

മനുഷ്യരാശിക്ക് ഉള്ള പ്രചോദനത്തിന്റെ സ്രോതസ് എന്ന നിലയിൽ എല്ലാവർഷവും ഒക്ടോബർ രണ്ടിന് ഇന്ത്യയിലുള്ള ജനങ്ങൾ മാത്രമല്ല ലോകം മുഴുവൻ മഹാത്മാഗാന്ധിയെ സ്മരിക്കുന്നതായി ഗാന്ധിജയന്തിക്ക് മുന്നോടിയായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞു മഹാത്മാഗാ്ഡ്ഡിയുടെ സത്യത്തിലും അഹിംസയിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ സന്ദേശം സമൂഹത്തിൽ തുല്യതയും ഐക്ട്രിവും കൊണ്ടുവരാനും അതുവഴി ലോകക്ഷേമത്തിലേക്കും വഴിക്കിളിച്ച്തായും ശ്രീ

റോഡപകടങ്ങളിൽപെട്ടവരെ സഹായിക്കുന്നവരിൽ നിന്നും പേരടക്കമുള്ള വ്യക്തിഗത വിവരങ്ങൾ പൊലീസുദ്യോഗസ്ഥർ ആവശ്യപ്പെടാൻ പാടില്ലെന്ന് ചട്ടത്തിൽ അനുശാസിക്കുന്നു

സഹായം നൽകുന്ന വ്യക്തികളോട് ബഹുമാനത്തോടെ പെരുമാറണമെന്നും തരത്തിലുള്ള ഒരു വിവേചനവും പാടില്ലെന്നും ചട്ടങ്ങളിൽ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട നിയമ പരിരക്ഷകൾ എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളുടെയും പ്രവേശന കവാടങ്ങളിലോഅനുയോജ്യമായ മറ്റിടങ്ങളിലോ വെബ്സൈറ്റിലോ ഇംഗ്ലീഷ് ഹിന്ദി പ്രാദേശിക ഭാഷകൾ എന്നിവയിൽ പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശം ഉണ്ട് സ്വമേധയാ സമ്മതം അറിയിച്ചാർ മാത്രമേ സഹായിച്ച ആളെ കേസിൽ സാക്ഷിയാക്കാൻ പാടുള്ളൂവെന്നും ചട്ടങ്ങളിൽ പറയുന്നു

ഇതു പ്രകാരം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിനും ചരക്കു നീക്കത്തിനും നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കില്ല

വിഷയത്തിൽ എത്രയും വേഗം മറുപടി നൽകണമെന്നും കമ്മീഷൻ അറിയിച്ചു

സംഭവത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയ കമ്മീഷൻ സമൂഹത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന അരക്ഷിതാവസ്ഥയിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നതെന്ന് അഭിപ്രായപ്പെട്ടു

നാമനിർദ്ദേശ പത്രികകൾ ഇന്ന് മുതൽ ഈ മാസം എട്ട് വരെ സമർപ്പിക്കാം

നേരത്തെ കനത്ത മഞ്ഞ് വീഴ്ച കാരണം വർഷത്തിൽ ആറ് മാസം ഈ താഴ്വരയിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടിരുന്നു ടണൽ വരുന്നതോടെ ഇതിന് ശാശ്വത പരിഹാരമാകും

ദുഃഖാചരണത്തിന്റെ ഭാഗമായി ഞായറാഴ്ച രാജ്യത്ത് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും

ജനീവയിലെ യു

മനുഷ്യാവകാശ സമിതിയിലാണ് ഐകൃരാഷ്ട്രസഭാ സ്ഥിരം ദൌതൃത്തിലെ ഇന്തൃയുടെ പ്രഥമ സെക്രട്ടറി പവൻ ബാധേ ഇതു സംബന്ധിച്ചു മറുപടി നൽകിയത് ഇന്തൃയ്ക്കെതിരെ കെട്ടിച്ചുമച്ച പ്രചാരണങ്ങൾ നടത്തുന്നതിലൂടെ പാകിസ്ഥാൻ പിന്തുടർന്ന് പോരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ ന്യായീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി

ഈ സാമ്പത്തിക വർഷത്തിൽ പിരിച്ചെടുത്ത ഏറ്റവും ഉയർന്ന നികുതിവരുമാനം ആണിത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ പിരിച്ചെടുത്ത ജി

ടി യെക്കാൾ നാലു ശതമാനം അധികമാണിതെന്നും മന്ത്രാലയ്ക്കും അറിയിച്ചു

വ്യക്തമായ കാഴ്ചപ്പാടും അതുല്യമായ നേതൃത്വപാടവവും എളിമയും പാവങ്ങളോട് കരുതലും ഉള്ള വൃക്തിയാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് എന്ന് ഉപരാഷ്ട്രപതി ട്വീറ്റ് ചെയ്തു

രാംനാഥ് കോവിന്ദിന്റെ സമ്പന്നമായ കാഴ്ചപ്പാടും നയപരമായ അറിവും രാജ്യത്തിന് മുതൽകൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ട്വിറ്ററിൽ കുറിച്ചു

പി മത്സരത്തിൽ എല്ലാ ജനങ്ങളും പങ്കാളികളാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അഭ്യർത്ഥിച്ചു ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ സവിശേഷതകൾ പങ്കുവയ്ക്കാനുള്ള ആകർഷകമായ മാർഗ്ഗമാണിതെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു വിദ്യാഭ്യാസ നയം പ്രാവർത്തികമാക്കാനുള്ള മാർഗരേഖ സംബന്ധിച്ച മുന്നൊരുക്കങ്ങൾ നടക്കുകയാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്ക് പറഞ്ഞു

പാർലമെന്റ് അടുത്തിടെ പാസാക്കിയ കാർഷിക നിയമങ്ങൾ കർഷകരുടെ ജീവിതത്തിൽ നിർണായകമാകുമെന്നും അദ്ദേഹം ഇറ്റാനഗറിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ നിയമങ്ങൾ കർഷകർക്ക് രാജ്യത്ത് എവിടെയും ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സ്വാതന്ത്ര്യം നൽകുമെന്നും മന്ത്രി പറഞ്ഞു

വാർദ്ധകൃകാല ബുദ്ധിമുട്ടുകളെകുറിച്ച് പൊതുസമൂഹത്തിന് അറിവ് പകരുന്നതിനായാണ് എല്ലാ വർഷവും ഒക്ടോബർ ഒന്ന് അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിക്കുന്നത് വയോജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാരും പൊതു സമൂഹവും സ്വകാര്യ മേഖലയും അന്താരാഷ്ട്ര സംവിധാനങ്ങളും ഒരുമിച്ച് ശ്രമം തുടരുണ്ട്മെന്നും അദ്ദേഹം പറഞ്ഞു

ട്രൈഫെഡിന്റെ ഈ സംരംഭത്തിലൂടെ രാജ്യത്തുടനീളമുള്ള ആദിവാസി സംരംഭകരുടെ ഉത്പന്നങ്ങളും കരകൌശല വസ്തുക്കളും പ്രദർശിപ്പിക്കാനും നേരിട്ട് വിപണനം ചെയ്യാനും സാധിക്കും